എസ് എൽ സി പ്ലസ്ടു ഡിജിറ്റൽ ക്ലാസുകൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും

എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനും എ ടികെ മോഹൻ ബഗാനും ജയം വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ മെട്രോളജി സമ്മേളനം വിഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര വ്യവസായ ഗവേഷണ കൌൺസിലും ദേശീയ ഫിസിക്കൽ ലബോറട്ടറിയും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് മെട്രോളജി രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് എന്നതാണ് സമ്മേളന പ്രമേയം ദേശീയ ആണവ സമയ മാനക സംവിധാനവും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും ലബോറട്ടറി പരിശോധനയും ഉപകരണങ്ങളുടെ കൃത്യതയും അന്താരാഷ്ട്ര നിലവാരത്തിന് തുല്യമാണെന്ന് ഉറപ്പാക്കുന്ന ഭാരതീയ നിർദേശക് ദ്രവ്യ പരിശോധനാ സമ്പ്രദായവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നിലവാരത്തിലേക്ക് ആഗോള ഉപകരണങ്ങളുടെ കൃത്യത ഉയർത്തുന്ന പരിശോധനാ രീതിയാണിത് ദേശീയ പരിസ്ഥിതി നിലവാര ലാബിനും പ്രധാനമന്ത്രി തറക്കല്ലിടും രംഭ സംസ്ഥാനത്ത് കോളജുകളിൽ അവസാന വർഷ ബിരുദ വിദ്യാർഥികൾക്കും മുഴുവൻ ബിരുദാനന്തര ബിരുദ വിദ്യാർഥികൾക്കും ഇന്ന് ക്ലാസുകൾ ആരംഭിക്കും കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന കോളേജുകൾ കർശന നിയന്ത്രണങ്ങൾ പാലിച്ചാണ് മാസങ്ങളുടെ ഇടവേളക്ക് ശേഷം ഇന്ന് ഭാഗികമായി തുറക്കുന്നത് രാവിലെ എട്ടര മുതൽ വൈകീട്ട് അഞ്ചര വരെയാണ് പ്രവർത്തന സമയം

ആവശ്യമെങ്കിൽ രണ്ട് ഷിഫ്റ്റുകളാക്കിയും അധ്യയനം ക്രമീകരിക്കാനും കോളേജുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്

ഈ മാസം ഒന്നു മുതൽ ഫോക്കസ് ഏരിയ ആസ്പദമാക്കി സ്കൂളുകളിൽ റിവിഷനും ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു

മുഴുവൻ പാഠഭാഗങ്ങളുടെയും ഡിജിറ്റൽ ക്ലാസ്സുകൾക്ക് ശേഷം ഫോക്കസ് ഏരിയയുടെ ഡിജിറ്റൽ ക്ലാസുകൾ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു

ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

പിന്നീട് കരുനാഗപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയ അദ്ദേഹത്തെ ആശുപത്രിയിൽ രാത്രി തിരുവന്തപുരത്തെ സ്വകാര്യ എത്തിച്ചെങ്കിലും അരമണിക്കൂറിനകം മരണം സംഭവിച്ചു

നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കി

വയലിൽ വീണ കിളികൾ അനാഥൻ പ്രണയകാലം ഒരു മഴ പെയ്തെങ്കിൽ കണ്ണീർക്കനലുകൾ തുടങ്ങിയവയാണ് പ്രധാന കവിതാസമാഹാരങ്ങൾ

അനിൽ പനച്ചൂരാന്റെ അകാല വിയോഗം സാംസ്കാരിക സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ തലമുറയിലെ പ്രഗത്ഭനായ കവിയെയും ഗാനരചയിതാവിനെയുമാണ് നഷ്ടമായതെന്ന് രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

ആവണി കുന്നിലെ കിന്നരി പൂക്കൾ എന്ന സിനിമയ്ക്ക് കഥയെഴുതിയാണ് ഷാജി പാണ്ഡവത്ത് സിനിമാ രംഗത്ത് വരുന്നത് കവചം പ്രായിക്കര പാപ്പാൻ ഗംഗോത്രി തുടങ്ങിയ സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കി

തെക്കു കിഴക്ക് ഏഷ്യൻ മേഖലയിൽ ആദ്യമായാണ് കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ ഡോ

കെയിൽ നിന്ന് വന്ന ആർക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ

അടുത്തിടെ യു

ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്

രുര കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര ഗവൺമെന്റ് ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും

കർഷകർ ഉന്നയിച്ച നാലു പ്രശ്നങ്ങളിൽ രണ്ടെണ്ണം പരിഹരിച്ചതായി കൃഷി മന്ത്രി അറിയിച്ചു

എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ച് എ ടി കെ മോഹൻ ബഗാൻ പോയന്റ് പട്ടികയിൽ ഒന്നാമതെത്തി ഗോവയിൽ എതിരില്ലാത്ത രണ്ടു ഗോളുകൾക്കായിരുന്നു എ

ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ ഐ

ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചത്

കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈന്റ് എല്ലാ ജില്ലകളിലും രണ്ടാഴ്ചക്കാലം വെബിനാറുകൾ കലാമത്സരങ്ങൾ എന്നിവ ഓൺലൈനായി നടത്തും രുമ ഗവൺമെന്റ് തിരുവന്തപുരം വഴുതക്കാട് അന്ധവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ടെലഗ്രാം ചാനലിനും ലൂയി ബ്രെയിലിനെക്കുറിച്ച് ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണത്തിനും ഇന്ന് തുടക്കം കുറിയ്ക്കും സംസ്ഥാനത്തെ കാഴ്ചപരിമിതരായ കുട്ടികൾക്കുവേണ്ടിയാണ് ചാനൽ തുടങ്ങുന്നതെന്ന് വിദ്യാലയ അധികൃതർ അറിയിച്ചു

ജെ പി സംസ്ഥാന ശില്പശാല ഇന്ന് കോഴിക്കോട് നടക്കും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ

പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കും രംഭ സംസ്ഥാനത്തെ രണ്ടാമത്തെ വാട്ടർ ടാക്സി ഇന്ന് കണ്ണൂർ പറശ്ശിനി പുഴയിൽ സർവ്വീസ് തുടങ്ങും മലബാർ മലനാട് റിവർ ക്രൂയീസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പറശ്ശിനി ബോട്ട് ടെർമിനൽ കേന്ദ്രീകരിച്ചാണ് വാട്ടർ ടാക്സി സർവ്വീസ് നടത്തുക രാവിലെ മന്ത്രി എ

ശശീന്ദ്രൻ വാട്ടർ ടാക്സി സർവീസ് ഉദ്ഘാടനം ചെയ്യും രും ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ അനന്തരാവകാശികൾക്ക് ധനസഹായം മന്ത്രി എം

പെട്ടിമുടി ദുരന്ത ബാധിതർക്ക് തമിഴ്നാട് ഗവൺമെന്റ് ധനസഹായം നേരത്തെ നൽകിയിരുന്നു രംഭ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ചീക്കോട് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആറ് പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണ ശൃംഖല സ്ഥാപിക്കൽ പ്രവൃത്തി ഇന്ന് രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

ശൈലജ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

എൽ

തിരൂർ പറവണ്ണ ജി

പി സ്കൂൾ മൂന്നാം ക്ളാസ് വിദ്യാർത്ഥി ഫയാസാണ് മരിച്ചത്